ആസിയാൻ സമ്മേളനത്തിനിടെ ജപ്പാൻ വിയറ്റ്നാം പ്രധാനമന്ത്രിമാരുമായും ശ്രീ

ജെ

ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട അധികൃതർക്ക് സുപ്രീം കോടതിയുടെ വിമർശനം

നിയമത്തെ ചൊല്ലി കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം നിയമം ദുരുപയോഗം ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നാളെ ഇന്ത്യൻ താരങ്ങളായ പി

സിന്ധുവും സൈന നെഹ്വാളും മത്സരിക്കാനിറങ്ങും

ഉച്ചകോടിക്കിടെ വിയറ്റ്നാം പ്രധാനമന്ത്രിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബെയുമായി ബാങ്കോക്കിൽ കൂടിക്കാഴ്ച നടത്തി കൂടുതൽവിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ വോയ്സ് ഇന്ത്യ ജപ്പാൻ സംഭാഷണങ്ങളെ സംബന്ധിച്ചും ഈ വർഷം നടക്കുന്ന വാർഷിക് ഉച്ചകോടി സംബന്ധിച്ചും ഇരു പ്രധാനമന്ത്രിമാരും സംസാരിച്ചു ഇരുരാജ്യങ്ങൾക്കും താൽപര്യമുള്ള മറ്റ് വിവിധ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു വികസനം സംബന്ധിച്ചുള്ള യോഗത്തിലും ശ്രീ

മോദി ബാങ്കോക്കിലെത്തിയത് ഏഷ്യ പസഫിക് മേഖലയിലെ വികസന സംബന്ധിയായ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാണ് കിഴക്കനേഷ്യ ഉച്ചകോടി ഭാവിയിലെസഹകരണം അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുക എന്നിവ ഇത്തവണത്തെ ഉച്ചകോടിയുടെ ഭാഗമാണ് മേഖലയിലെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം സംബന്ധിച്ചും ചർച്ചയുണ്ടാകും ആസിയാൻ രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് മഹാരാഷ്ട്രയിൽ ഉടൻതന്നെ ഗവൺമെന്റ് രൂപീകരിക്കാനാകുമെന്ന് ശ്രീ

മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരണത്തിൽ സ്തംഭനാവസ്ഥ തുടരവെയാണ് ഇരുവരും സംസ്ഥാന ഗവർണറെ മുംബൈയിൽ സന്ദർശിച്ചത് മുഖ്യമന്ത്രി ്സ്ഥാനവും മന്ത്രിപദവികളും തുല്യമായി പങ്കിടണമെന്ന ശിവസേനയുടെ ആവശ്യം കല്ലുകടിയായിരിക്കെയാണ് പുതിയ നീക്കമുണ്ടായത്

മലിനീകരണം മൂലം നിരപരാധികളായ ജനങ്ങളുടെ അമൂല്യമായ ആയുസാണ് നഷ്ടമാകുന്നതെന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്രയും ദീപക് ഗുപ്തയും ഉൾപ്പെട്ട ബഞ്ച് അഭിപ്രായപ്പെട്ടു മലിനീകരണം തടയാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി പഞ്ചാബിലും ഹരിയാനയിലും പടിഞ്ഞാറൻ യു

യിലും കൃഷിയിടങ്ങളിൽ തീയിടുന്നത് തടയണമെന്നും ഇതിനായി സംസ്ഥാന ഗവൺമെൻുകൾ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

നിർമ്മിതബുദ്ധി ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യകൾ എന്നിവ യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് ന്യൂഡൽഹിയിൽ പ്രതിരോധ വിഷയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പ്രസംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് മാറി ഡിജിറ്റൽ സാങ്കേതികവിദ്യ യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണത്തിൽ കടന്നുവന്നിട്ടുണ്ട് യുദ്ധോപ്കര്ണങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിന് പ്രധാനപ്പെട്ട കേന്ദ്രമായി രാജ്യം ഉയർന്നു വരേണ്ടതുണ്ടെന്നും ശ്രീ

നേതാവ് ഉപേന്ദ്ര കുഷ്വാഹ സി

ജനറൽ സെക്രട്ടറി ഡി രാജ സി

എം നേതാവ് ടി

രംഗരാജൻ ആർ

നേതാവ് മനോജ് ഝാ തൃണമൂൽ കോൺഗ്രസിന്റെ നദീം ഉൾഹക്ക് ഡി

യുടെ ടി

രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ ശരത് യാദവാണ് യോഗം വിളിച്ച് കൂട്ടിയത് സാമ്പത്തിക രംഗത്തെ തിരിച്ചടി മേഖല സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള നീക്കം എന്നിവ ഉയർത്തി കേന്ദ്ര ഗവൺമെന്റിനെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളാണ് ചർച്ച ചെയ്തത്

എ പി നിയമം സംസ്ഥാന ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യുന്നെന്ന് ആരോപിച്ച് കേരള നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ ബഹളം ഈ വിഷയം ചൂിക്കാട്ടി ഉന്നയിച്ച അടിയന്തപ്രമേയ ചർച്ച നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി

എ

എ ദുരുപയോഗം ചെയ്യുന്നതിനെ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജ്യൻ അറിയിച്ചു കോഴിക്കോട് പന്തീരാങ്കാവിൽ രണ്ടു യുവാക്കൾക്ക് എതിരെ യു എ

എ പ്രപകാരം കേസെടുത്തവിഷയം ഗവൺമെന്റ്ഗൌരവപരമായി പരിശോധിക്കുമെന്നും ഇക്കാര്യത്തിൽ ഗ്വൺമെന്റിന് വ്യക്തമായ നിലപാടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പോലീസ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടപടികൾ എടുത്തിട്ടുള്ളത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നൽകിയ ഹർജി പാലക്കാട് സെഷൻസ് കോടതി തീർപ്പാക്കി

സിന്ധുവും സൈന നെഹ്വാളും കളത്തിലിറങ്ങും ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ ജേതാവായ സിന്ധുവിന്റെ ആദ്യ മത്സരം ജർമ്മനിയുടെ വ്യോണെ ലിയുമായാണ്

മുൻ ലോക ഒന്നാം നമ്പർ ശ്രീകാന്ത് ടൂർണമെന്റിൽ കളിക്കുന്നില്ല

കഴിഞ്ഞ മാസം നടന്ന ഫ്രഞ്ച് ഓപ്പണിൽ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഉദയകിളിയന്നൂർ

ന്യൂഡൽഹിയിൽ രാസവ്യവസായം സ്പ്ബന്ധിച്ചുള്ള സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ പ്രകാശ് ജാവദേക്കർ സുരക്ഷിതമായും ഉത്തരവാദിത്തത്തോടെയും പ്രവീർത്തിച്ചാൽ വ്യവസായശാലകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനു്ള്ള സൌകര്യം ഒരുക്കാൻ എൻ

എ ഗവൺമെന്റ് തയ്യാറാണെന്നുട് മശ്തി പറഞ്ഞു ഇതിനുള്ള സംവിധാനം വ്യവസായികൾ സൃഷ്ടിക്കുണ്ട് ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ചും ശ്രീ

പ്രകൃതിക്കനുകൂലമായ ജീവിതശൈലിയാണ് ഇന്ത്യയിലുള്ളത് എന്നാൽ വ്യവസായത്തിന്റെ കാര്യത്തിൽ സ്ഥിതി മറിച്ചാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ ഭൂകമ്പവും രക്ഷാപ്രവർത്തനവും സംബന്ധിച്ച ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

രജിസ്റ്റർ നമ്പർ ഒറ്റ അക്കത്തിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ ഓടുന്ന ദിവസം ഇരട്ട അക്കത്തിൽ അവസാനിക്കുന്ന രജിസ്റ്റർ നമ്പറുള്ള വാഹനങ്ങൾ നിരത്തിൽ പ്രവേശിക്കാൻ പാടില്ല

ഇരുചക്ര വാഹനങ്ങൾ വനിതകൾ ഓടിക്കുന്ന വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങൾ അവശ്യ സർവ്വീസുകൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

മാരുടെ കാര്യത്തിൽ ബി

ക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് മുഖ്യമന്ത്രി ബി

കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എം എൽ എ മാരുടെ രാജിക്കാര്യത്തിൽ ബി ജെ

യെദ്യൂരപ്പ സംസാരിക്കുന്ന വീഡിയോ പുറത്തുവന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്

ജെ